സംവാദങ്ങൾക്ക് വർത്തമാന കാലത്ത് ഏറെ പ്രസക്തിയുണ്ടെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ

ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനം ഇന്ന് രാജ്കോട്ടിൽ ശ് ൻ അ അ ശ്ര ്യ അ അ അ ഇന്ത്യയുടെ വികസന മുന്നേറ്റത്തിൽ പാരമ്പര്യത്തിനും വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കോഴിക്കോട് ഐ

ഊർജ്ജസ്വലരായ യുവജനങ്ങളാൽ സമ്പന്നമായ ഇന്ത്യ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്ന രാജ്യമായി മാറിക്കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി രാജ്യത്ത് സോഫ്റ്റ് വെയർ സ്റ്റാർട്ട് അപ്പ് സംരംഭങ്ങൾ അനുദിനം പുരോഗതി കൈവരിക്കുകയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു

സംവാദങ്ങൾക്ക് വർത്തമാനകാലത്ത് ഏറെ പ്രസക്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോഴിക്കോട് ബീച്ചിൽ ആരംഭിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ശ്രീനാരായണഗുരു പോലും സംവാദത്തിന്റെ പ്രസക്തി എടുത്തു പറഞ്ഞിട്ടുണ്ട് സംവാദത്തിലൂടെ മാത്രമേ ബോധത്തെളിമ ഉണ്ടാവുകയുള്ളുവെന്നും അത്തരമൊരു ബോധം നമ്മുടെ സമൂഹത്തിന് പണ്ടേയുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക നിലച്ച് പോയ ഗവേഷണ പദ്ധതികൾ പുനരാരംഭിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ആയൂർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

മനസിലും പ്രവൃത്തിയിലും ധർമസങ്കൽപ്പവും മതേതര കാഴ്ചപ്പാടുകളും സൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു പി എസ് വാരിയർ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഒ ബംഗുളൂരുവിൽ അറിയിച്ചു

ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സംബന്ധിച്ച എല്ലാ നടപടികളും ഗവൺമെന്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടെന്ന് പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൾ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ജില്ലാ കലക്ടർമാർക്കയച്ച അടിയന്തര സന്ദേ ശത്തിൽ വൃക്തമാക്കി

ആർ പുതുക്കുന്ന കാര്യം പരാമർശിച്ച സാഹചര്യത്തിലാണ് ഗവൺമെന്റ് ഇക്കാര്യം വൃക്തമാക്കിയത് ഇത്തരം നടപടികൾ ആവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കണ മെന്നും കലക്ടർമാർക്ക് പ്രിൻസിപ്പൾ സെക്രട്ടറി നിർദേശം നൽകി സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും

യോഗത്തിന് സമാപനം കുറിച്ച് മറ്റന്നാൾ വൈകീട്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് മഹാ സമ്മേളനം സംഘടിപ്പിക്കും കേരളാ കോൺഗ്രസ് എമ്മിന്റെ തെർഞ്ഞെടുപ്പ് ചിഹ്നമായ രണ്ടില തെര ഞ്ഞെടുപ്പ് കമ്മീഷൻ താൽക്കാലികമായി മരവിപ്പിച്ചു

ജെ ജോസഫ് വിഭാഗം വരുന്ന തെരഞ്ഞെടുപ്പിൽ ചിഹ്നം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് ജോസ് കെ മാണി വിഭാഗം നൽകിയ പരാ തിയുടെ അടിസ്ഥാനത്തിലാണ് തർക്കത്തിൽ അടുത്ത വാദം കേൾക്കുന്ന തിങ്കളാഴ്ച വരെ ചിഹ്നം മരവിപ്പിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു തർക്കം സംബന്ധിച്ച് തീരു മാനം നീളുകയാണെങ്കിൽ ചിഹ്നം മരവിപ്പിച്ചത് തുടരാൻ സാധ്യതയു ണ്ടെന്നും കേന്ദ്രങ്ങൾ പറഞ്ഞു

മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എ സി മൊയ്തീൻ എന്നിവ രുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് ആദ്യഘട്ട ഉദ്യോഗസ്ഥ തല ചർച്ച നടന്നത് ജൽ ജീവൻ മിഷനുമായി സഹകരിച്ച് പദ്ധതി നട പ്പിലാക്കുന്നതിന്റെ സാധൃതകളാണ് യോഗം പരിശോധിച്ചത് ജലഅതോ റിറ്റി കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികൾ തയാ റാക്കുമ്പോൾ ബന്ധപ്പെട്ട തദ്ദേശ സഹകരണ സ്ഥാപനവുമായി കൂടി യാലോചന നടത്തണമെന്ന് ധാരണയായി കുടിവെള്ള പദ്ധതികളുടെ അറ്റകുറ്റപണികൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തും വയനാട് ജില്ലയിൽ വീടുകളിലെ പ്രസവം ഒഴിവാക്കി ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനും അമ്മയുടേയും കുഞ്ഞിന്റേയും ജീവൻ രക്ഷിക്കാനുമായി ഗർഭകാല ഗോത്ര മന്ദിരം പദ്ധതിക്ക് തുടക്ക മായി മന്ത്രി കെ

പ്രസവം അടുക്കുന്നതിനോടനുബന്ധിച്ച് കുടും ബത്തോടൊപ്പം താമസിക്കാൻ കഴിയുന്ന രീതിയിലാണ് പദ്ധതി വിഭാ വനം ചെയ്തിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വയനാട് ജില്ലയിൽ വീടുകളിലെ പ്രസവം കൂടുതലാണെന്ന് കണ്ടെ ത്തിയതിനെ തുടർന്നാണ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്

വയനാട് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ സ്പെഷ്യൽ ന്യൂ ബോൺ കെയർ യൂണിറ്റ് വിശ്രമ മന്ദിരം കാത്ത്ലാബിന്റെ നിർമ്മാണം എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സൌരോർജ്ജ പദ്ധതികൾ വിപൂലപ്പെടുത്തി ഊർജ്ജ രംഗത്ത് സ്വയംപര്യാപ്തത കൈവരിക്കാനാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം

വി സബ് സ്റ്റേഷൻ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ സബ്സ്റ്റേഷനുകൾ യാഥാർഥൃമായതോടെ കണ്ണൂർ ജില്ലയുടെ ഊർജ ക്ഷാമം ഉടൻ തന്നെ സമ്പൂർണമായി പരിഹരിക്കാനാകുമെന്ന് മന്ത്രി എം എം മണി ശ്രീകണ്ഠാപുരത്ത് പറഞ്ഞു ഇടുക്കിയിൽ രണ്ടാം പവർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കയറ്റുമതി ലക്ഷ്യമാക്കി കാർഷികവിളകളെ മൂല്യവർധിത ഉൽപന്നങ്ങളാക്കി മാറ്റുന്ന കൃഷിരീതികളിലേക്ക് കർഷകർ മാറണമെന്ന് മന്ത്രി വി

സുനിൽകുമാർ പറഞ്ഞു പാലക്കാട് വാണിയംകുളം സ്വാശ്രയ കർഷക സമിതിയുടെ കാർഷിക വിപണി മന്ദിരം ഉൽഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സുധാകരൻ കൊല്ലത്ത് പറഞ്ഞു ചടയമംഗലം പുനലൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പെരുങ്ങള്ളൂർ പാലം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം

മുംബൈയിൽ നടന്ന ആദൃ ഏകദിനത്തിൽ ഓസ്ട്രേ ലിയയോട് പത്തു വിക്കറ്റിന് പരാജയപ്പെട്ട ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ് മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനം മറ്റ ന്നാൾ ബംഗുളൂരുവിൽ നടക്കും ഗോഹട്ടിയിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിന് ഭാരോദ്ധഹ നത്തിൽ വെങ്കലം

എസ് സുഫീന ജാസ്മിനാണ് വെങ്കലം നേടിയത്

ഹരിയാന രണ്ടും ഡൽഹി മൂന്നും സ്ഥാനങ്ങളിലാണ് ഐഎസ്എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ് സിക്ക് ജയം ചെന്നൈ യിൽ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ എതിരി ല്ലാത്ത രണ്ട് ഗോളിനാണ് ചെന്നൈയിൻ എഫ്

ഇന്ന് മുംബൈ സിറ്റി എഫ് സി ബംഗുളൂരു എഫ് സിയെ നേരിടും

ആദ്യമത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാനെ നേരിടും നിലവിലെ ചാമ്പ്യൻമാരായ ഇന്ത്യ മറ്റുന്നാൾ ശ്രീലങ്കയുമായി ഏറ്റുമു ട്ടും

ഫൈനലിൽ ഹരിയാന രണ്ട് ഗോളിനാണ് കേര ളത്തെ പരാജയപ്പെടുത്തിയത് റിലയൻസ് കപ്പ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ചാമ്പ്യൻമാരായ മലപ്പുറം എം

പി ഹയർസെക്കൻഡറി സ്കൂൾ ടീമിന് ജില്ലാ സ്പോർട്സ് കൌൺസി ലിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി

ഫുട്ബോളിൽ മലപ്പുറത്തിന്റെ ഖ്യാതി തുടരുമെ ന്നതിന്റെ സൂചനയാണ് എം

പി സ്കൂളിന്റെ നേട്ടമെന്ന് മന്ത്രി പറ ഞ്ഞു കൊൽക്കത്തയിലെ പാരമ്പര്യ ക്ലബ്ബുകളിൽ ഒന്നായ മോഹൻബഗാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കൊൽക്കത്തയുടെ സാന്നിധ്യമായ എ

അടുത്ത സീസണിൽ എ

കെ മോഹൻബഗാൻ എന്ന പേരിലായിരിക്കും ടീം ഐ

എല്ലിൽ കളിക്കുക പയ്യന്നൂരിൽ കണ്ണൂർ സർവ്വകലാശാലാ കലോത്സവത്തിലെ സ്റ്റേജ് ഇനങ്ങൾ ഇന്ന് ആരംഭിക്കും മന്ത്രി കെ

എഴുകോൺ ഗവണ്മെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ മന്ത്രി കെ രാജു കല്പോത്സവം ഉദ്ഘാടനം ചെയ്തു കലോത്സവ വേദികളിൽ കുട്ടികൾ തമ്മിൽ ആരോഗൃകരമായ മത്സരമായിരിക്കണം കാഴ്ച്ച വയ്ക്കേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു

മുൻ എംപി രാംചന്ദ്ര പാസ്വാന്റെ സ്മരണരാർത്ഥം ലോക ജൻശക്തി പാർട്ടി ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ ഇന്ന് രാവിലെ ഗവർണ്ണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് സമ്മാനിക്കും അച്ചടി വിഭാഗത്തിൽ ദീപിക കോട്ടയം ബ്യൂറോ ചീഫ് റെജി ജോസഫിനും ദൃശ്യ വിഭാഗത്തിൽ മാതൃഭൂമി ന്യൂസ് ചെന്നൈ റിപ്പോർട്ടർ അനൂപ് ദാസിനുമാണ് അവാർഡ് ഏഴാമത് സാമ്പത്തിക സെൻസസിന് കൊല്ലം ജില്ലയിൽ തുടക്കമായി ജില്ലാ കലക്ടർ ബി അബ്ദുൽ നാസറിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് സർവേക്ക് തുടക്കം കുറിച്ചു സർവേക്ക് ദേശീയ പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധമുണ്ടെന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എല്ലാവരും സർവ്വേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും കലക്ടർ അറിയിച്ചു

കണ്ണൂരിൽ നടന്ന സമിതി സിറ്റിങ്ങിൽ ചെയർമാൻ ചിറ്റയം ഗോപകുമാർ അംഗം കെ ഡി പ്രസേനൻ എന്നിവരാണ് ഈ നിർദേശം നൽകിയത് പൌരത്വ നിയമ ഭേദഗതി വിവേചനപരമല്ല ഭരണഘടനാപരമാണെന്ന് ബിജെപി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോ

ബിജെപി കോഴിക്കോട് ജില്ലാ കമ്മറ്റി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിൽ ജനിച്ചുവളർന്ന ആർക്കും അവരുടെ പൌരത്വം നഷ്ടമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു

സിവർക്കിംഗ് പ്രസിഡന്റ് റകെ സുധാകരൻ എം പി നയിക്കുന്ന രാഷ്ട്ര രക്ഷാ മാർച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും മാർച്ച് വൈകിട്ട് സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് വോട്ടർപട്ടികയുമായി ബന്ധപ്പെട്ട തർക്ക ത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത്രാജ് പ്രതിനിധികൾ തിരുവനന്തപുരത്ത് സംസ്ഥാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പ്രതിഷേധം അറിയിച്ചു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സുതാര്യമായി നടത്തുന്നതിനും സർവ്വകക്ഷി യോഗം വിളിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കൊച്ചി കോർപ്പറേഷനിലെ മൂന്ന് സ്ഥിരം സമിതികളിലേക്ക് നടന്ന തെരഞ്ഞെ ടുപ്പിൽ യു ഡി

ധനകാര്യം സ്ഥിരം സമിതി തെരഞ്ഞെ ടുപ്പിൽ യു

എഫ് സ്ഥാനാർഥി സെലീന പിൻഹീറോയും ക്ഷേമ കാര്യ സ്ഥിരം സമിതിയിലേക്ക് പി ഡി മാർട്ടിനും പൊതുമരാമത്ത് സ്ഥിരം സമിതിയിലേക്ക് വിജയകുമാറുമാണ് വിജയിച്ചത്